ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹഅധ്യക്ഷനാകും

ന് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ സംയുക്ത അഭ്യാസപ്രകടനത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കം കേന്ദ്ര ആഭ്യന്തമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും

ജില്ലകളിലും മനുഷ്യക്കടത്ത് തടയാനുള്ള യൂണിറ്റുകൾ ആരംഭിക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ്

ഉച്ചകോടിയിൽ ശ്രീ മോദി സഹഅധ്യക്ഷനാകും

തായ്ലന്റ് പ്രധാനമന്ത്രി ജനറൽ പ്രയൂട്ട് പ്രൊൻ ഒ ചാ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ മ്യൂട്ടൻ്മാർ സ്റ്റേറ്റ് കൌൺസിലർ ഓങ് സാങ് സൂചി തുടങ്ങിയവരുമായി ശ്രീ ന്ന്രേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും ഇന്ത്യയിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതികളെ സ്വാഗതം ചെയ്യുന്നതായി ആദിത്യ ബിർള ഗ്രൂപ്പ് ചെയർമാൻ കുമാർ മംഗളം ബിർള ആകാശവാണിയോട് പറഞ്ഞു ഇന്ത്യയുടെ കിഴക്കൻ മേഖല നയം വിദേശ നയം തുടങ്ങിയവയിൽ ആസിയാൻ രാജ്യങ്ങളുമായുള്ള ബന്ധം പ്രധാന ഘടകമാണെന്ന് ആകാശവാണി ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു

സിക്കിം ഗവർണർ ഗംഗ പ്രസാദും മുഖ്യമന്ത്രി പി

സർവകലാശാല ചാൻസിലർ ലഫ്റ്റനന്റ് ജനറൽ ഡി

ഷെഖാത്കാർ അധ്യക്ഷത വഹിക്കും

അക്കാഡമിയുടെ ബിരുദദാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കായികാദ്ധാനം കുറഞ്ഞു ജീവിതശൈലിയും മാറിവരുന്ന ഭക്ഷണശീലങ്ങളുമാണ് രോഗങ്ങളുട്ടെ പ്രധാന കാരണം യോഗയുടേയും ആരോഗ്യകരമായ ഭക്ഷണത്തിള്ള്ട്ടയും ആവശ്യകത ഊന്നിപ്പറഞ്ഞ ഉപരാഷ്ട്രപതി ലോകത്തീല്പ് പ്രമുഖ ആരോഗൃ സംരക്ഷണത്തിനുള്ള ഒരു ലക്ഷ്യസ്ഥാനമായി ഇന്ത്യമാറിയെന്നും അഭിപ്രായപ്പെട്ടു

കൃഷി നാശം വിലയിരുത്തിയ കാബിനറ്റ് ഉപസമിതി യോഗത്തിനുശേഷം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അറിയിച്ചതാണ് ഇക്കാര്യം

ധനസഹായത്തിനായി കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുമെന്നും എന്നാൽ അതു ലഭിക്കുന്നതുവരെ സംസ്ഥാന ഗവൺമെന്റ് സഹായധനം വിതരണം ചെയ്യുമെന്നും ശ്രീ ഫഡ്നാവിസ് പറഞ്ഞു

പുലർച്ചെ നടന്ന പ്രത്യേക പൂജകളോടെയാണ് ഈ വർഷത്തെ ആഘോഷങ്ങൾക്ക് സമാപനമായത്

ബീഹാറിൽ ഗംഗ കോസി സോൺ എന്നീ നദീ തടങ്ങളിൽ ഭക്തർ ഒത്തുകൂടി പ്രത്യേക പൂജകൾ യ്കട്ടത്തി ഛാട്ട് ഉത്സവത്തിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്ല്ധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു

ക്യാൻസർ വൃക്ക രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ് ഈ സംവിധാനം കൂടുതൽ രോഗികൾക്ക് ശസ്ത്രക്രിയ കുറഞ്ഞ മരണ നിരക്ക് തുടങ്ങിയവയാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകത

യുവ ഡോക്ടർമാർക്കായി റോബോട്ടിക് പരിശീലന കേന്ദ്രവും ആരംഭിച്ചിട്ടുണ്ട്

എഫ് ക്യാമ്പിന് നേരെ നടന്ന ഭീകരാക്രമണ കേസിൽ നാല് പ്രതികൾക്ക് രാംപൂർ കോടതി വധശിക്ഷ വിധിച്ചു

കേസിലെ രണ്ട് പ്രതികൾ പാക്കിസ്ഥാൻ സ്വദേശികളാണ്

ദുരന്ത പ്രതികരണ സംവിധാനത്തെക്കുറിച്ചുള്ള ബ്രോദ്ധ്യവത്ക്കരണം വിവര വിനിമയ സാങ്കേതിക വിദ്യയുടെ ഏക്കെമാറ്റം തുടങ്ങിയവയാണ് ഈ അഭ്യാസപ്രകടനത്തിന്റെ പ്രല്ക്ഷ്യം നഗരമേഖല സംബന്ധിച്ച അഭ്യാസ പ്രകടനത്തിൽ പ്രദേശത്തീന്റെ തയ്യാറെടുപ്പുകൾക്കായിരിക്കും പ്രധാന ഊന്നൽ

ഒ യിലെ ചൈന ഇന്ത്യ കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ പാകിസ്ഥാൻ റഷ്യ താജികിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ എന്നീ എട്ട് അംഗ രാഷ്ട്രങ്ങൾ അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കും

വോയ്സ് രാജ്യത്തെ എല്ലാ പൊലീസ് സ്റ്റേഷനുകളിലും വനിതാ ഹെൽപ് ഡെസ്ക്കുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി ട്വിറ്ററിൽ അറിയിച്ചു സ്ത്രീ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത് പദ്ധതികൾ ദ്രുതഗതിയിൽ നടപ്പാക്കാൻ ഇടപെട്ട കേന്ദ്രആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ശ്രീമതി സ്മൃതി ഇറാനി നന്ദി അറിയിച്ചു നിർഭയ പദ്ധതിക്ക് കീഴിലുള്ള ഉന്നതാധികാര സമിതിയാണ് മനുഷൃക്കടത്ത് തടയാൻ എല്ലാ ജില്ലകളിലും യൂണിറ്റുകൾ ആരംഭിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിരാട് ക്ക്യെന്ന്ലിക്ക് വിശ്രമം അനുവദിച്ചതിനെതുടർന്ന് മുന്ന് മത്സരങ്ങളുള്ള പരമ്പയിൽ രോഹിത് ശർമയാണ് ഇന്ത്യയെ ഓപ്പണർ തമീം ഇക്ബാലും ഐ സി

ആകാശവാണിയുടെ രാജധാനി എഫ്

ആൾ ഇന്തൃ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ ഫിഫ ചീഫ് വിമെൻസ് ഫുട്ബോൾ ഓഫീസർ സരായ് ബെയർമാൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു

ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ വിശിഷ്ടമായ സംഭാവനകൾ പരിഗണിച്ചാണ് രജനീകാന്തിന് അവാർഡ് നൽകുന്നത് ഗോവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ നേരത്തേ അറിയിച്ചിരുന്നു

ലഡാക്ക് കേന്ദ്രഭരണപ്രദേശത്ത് കാർഗിൽ ലേ എന്നീ ജില്ലകളാണുള്ളത് മറ്റ് ജില്ലകൾ ജമ്മു കശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിൽ ഉൾപ്പെടുന്നതായി ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ ആർ

മാത്തൂർ ഇന്നലെ ന്യൂഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി ലഫ്റ്റനന്റ് ഗവർണറായി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് അദ്ദേഹം ശ്രീ അമിത് ഷായെ സന്ദർശിക്കുന്നത്

ബി ഐ

കേസിൽ പവർ കോർപ്പറേഷനിലെ മുൻ ട്രസ്റ്റ് സെക്രട്ടറി പ്രവീൺകുമാർ ഗുപ്ത മുൻ ഫിനാൻസ് സെക്രട്ടറി സുധാംശു ദ്ധിവേദി എന്നിവരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു